സുരേന്ദ്രൻ

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

പണ്ഡിറ്റ് ദീനദയാൽ ഉപാ ധ്യായ സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഉപാധ്യായുടെ പ്രതിമയും അനാവരണം ചെയ്യും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അന്നദാനശാല അന്നക്ഷേത്രയും പ്രധാ നമന്ത്രി ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രത്തിലെത്തുന്ന ആയിരക്കണക്കിനാളുകൾക്ക് പ്രസാദഭക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടാണ് അന്നശാലാസമുച്ചയം നിർമ്മിച്ചത്

സി ടി

യുടെ മഹാകാൽ തീർത്ഥാടന എക്സ്പ്രസ് ട്രെയിനും നരേ ന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഫ്ളാഗ്ഓഫ് ചെയ്യും വാരണാസി ഉജ്ജയിൻ ഓംകാരേശ്വർ ജ്യോതിർലിംഗ ദർശന സൌകര്യം ഒരുക്കുന്നതാണ് ഈ ട്രെയിൻ

കാഞ്ഞ ങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയെ ഇന്ന് ഡിസ്ചാർജ്ജ് ചെയ്യുമെന്ന് മന്ത്രി കെ

ശൈലജ് തിരുവനന്തപുരത്ത് അറിയിച്ചു

വീട്ടിൽ വിദ്യാർഥി യുടെ നിരീക്ഷണം തുടരും തൃശൂർ മെഡിക്കൽകോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർഥിനി മാത്ര മാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചവരിൽ ഇനി ഡിസ്ചാർജ് ചെയ്യാനുള്ളത്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

കോഴിയിറച്ചിയിൽനിന്നും മുട്ടയിൽനിന്നും കൊറോണ പടരുമെന്നതരത്തിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ അടിസ്ഥാന രഹിതമാണെന്ന് കർണ്ണാടക മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു ഇത്തരം റിപ്പോർട്ടുകൾ ശാസ്ത്രീയ അടിത്തറയില്ലാത്തതാണെന്ന് കർണ്ണാടക ഗവൺമെന്റ് വ്യക്തമാക്കി മനുഷ്യനിൽനിന്ന് മനുഷ്യനിലേക്ക് മാത്രമേ രോഗബാധ പടരൂ എന്നും മൃഗസംരക്ഷണവകുപ്പ് അധി കൃതർ അറിയിച്ചു

ഡയമണ്ട് പ്രിൻസസ് എന്ന കപ്പൽ ഈ മാസം അഞ്ചു മുതൽ യോക്കോഹാമ തുറമുഖത്ത് നിർത്തിയിട്ടിരിക്കയാണ് കപ്പലിൽ കഴിയുന്ന യു

പൌരന്മാരെ കൊണ്ടുപോകാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതി നിടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്

ഡൽഹിയിലെ രാംലീലമൈതാനത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്

ലഫ്റ്റനന്റ് ഗവർണ്ണർ അനിൽ ബൈജാൽ മുഖ്യമ ന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞ ആംആദ്മി മന്ത്രിസഭയിലെ അംഗങ്ങളെ പുതിയഗവൺമെന്റിലും നിലനിർത്തിയിട്ടുണ്ട് കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണമാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായ കെ

ആചാരസംരക്ഷണത്തിന് ഏതറ്റം വരെയും പോകുമെന്നും സൂരേന്ദ്രൻ പത്തനംതിട്ടയിൽ അറിയിച്ചു ക്രൈസ്ത വസമൂഹം ബിജെപിയോട് അടുത്തസമീപനമാണ് പുലർത്തുന്നതെന്നും അവരുടെ താൽപര്യസംരക്ഷണത്തിന് നടപടിയെടുക്കുമെന്നും സുരേന്ദ്രൻ ഉറപ്പുനൽകി കേന്ദ്ര ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ ഇടതുപക്ഷപാർട്ടികൾ മറ്റന്നാൾ സംഘ ടിപ്പിക്കുന്ന പ്രതിഷേധം ശക്തമായ പ്രക്ഷോഭ്യമാക്കിമാറ്റുമെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരിബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ബജറ്റിനുശേഷം പാചക വാതകത്തിന് വൻതോതിൽ വില ഉയർത്തിയ കേന്ദ്രനടപ ടി അ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും കോടിയേരി വിലയിരുത്തി ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ കേന്ദ്രഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലാ യിരിക്കും സമരപരിപാടികൾ കേന്ദ്രീകരിക്കുന്നത്

എം സംസ്ഥാന് സെക്രട്ടറി അറിയിച്ചു പൌരത്വവിഷയത്തിൽ കോൺഗ്രസ് യോജിച്ചപ്രക്ഷാഭത്തിന് എതിരാണെന്നും കോടിയേരി പറഞ്ഞു

എ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അലനും താഹയും മാവോവാദികൾതന്നെയാണെന്ന് കോടിയേരി പറഞ്ഞു

എമ്മിലും മാ്വോയിസ്റ്റ് സംഘടയിലും പ്രവർത്തിച്ചുവെന്നും ഇവരെ പാർട്ടി യിൽനിന്നും പുറത്താക്കിയതാണെന്നും കോടിയേരി അറിയിച്ചു ഈ വർഷത്തെ പഞ്ചായത്ത് ദിനാഘോഷം മറ്റന്നാൾ വയനാട് വൈത്തരി വില്ലേ ജിൽ ആരംഭിക്കും രണ്ടുദിവസത്തെ പരിപാടികൾ മന്ത്രി ഡോ

തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും ദിനാഘോഷത്തിനു മുന്നോടിയായി നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ കില വിവിധ മിഷനുകൾ എം ജി എൻ ആർ

ജി എസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രദർശനവും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും കൽപ്പറ്റ എസ്

ജെ സ്കൂളിൽ നടക്കും നവകേരള നിർമ്മിതിയും സ്ത്രീ മുന്നേറ്റവും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ ഹരിതകേരളം മിഷൻ എക്സി ക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സ്ൺ ഡോ

ആളുകൾക്ക് സൂര്യാതപം ഏൽക്കുന്നതായി റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജില്ലയിൽ ഒരാൾ വെയിലേറ്റ പൊള്ളലോടെ ചികിത്സ തേടി

പൌരത്വനിയമത്തിലെ വിദ്വേഷ പ്രചാരണത്തിനെതിരെ ബിജെപി നാളെയും മറ്റന്നാളും കോഴിക്കോട് ജില്ലയിൽ ഏകതായാത്ര സ്ംഘടിപ്പിക്കും വടകര കോഴി ക്കോട് ലോക് സഭാ മണ്ഡലങ്ങളിൽ ഏക താ യാ ത്രയ്ക്ക് ജില്ലാ പ്രസിഡന്റ് വി

രാജ്യമാണ് പ്രധാനം വോട്ട്ബാ ങ്കിനുവേണ്ടി നടത്തുന്ന വിദ്ധേഷ പ്രചാരണം നാടിന് ആപത്ത് എന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് യാത്ര സംഘടിപ്പിക്കുന്നത് നാളെ ഉച്ച കഴിഞ്ഞ് പയ്യോളി യിൽനിന്ന് വടകരയിലേക്കും ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് വെള്ളിമാടുകുന്നിൽനിന്ന് മുതലക്കുളത്തേയ്ക്കുമാണ് പദയാത്ര രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറം കാത്തുസൂക്ഷിച്ച സ്നേഹബന്ധങ്ങളും സാധാരണക്കാരന്റെ സന്തോഷത്തിലും ദുഖത്തിലും കൂടെനിന്ന പ്രവർത്തനശൈ ലിയുമാണ് മുൻമന്ത്രി എൻ

ബാലകൃഷ്ണനെ ജനകീയനാക്കിയതെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നീലേശ്വരത്ത് പറഞ്ഞു ഒരു വർഷത്തെ എൻ

ബാലകൃഷ്ണൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു അദ്ദേഹം പ്രമുഖ സ്വാതന്ത്ര്യസമരസേനാനി കെ

നാരായണനേയും കെ ആർ കണ്ണനേയും രാജ്മോഹൻ ഉണ്ണിത്താൻ എം

ചടങ്ങിൽ പൊന്നാടയണിയി ച്ചു കാസർകോട് സെന്റ് പയസ് ടെൻത് കോളജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദേശീയ യൂത്ത് വോളിബോൾ ടൂർണ്ണമെന്റ് ഇന്ന് സമാപിക്കും ഫൈനലിൽ എം

വനിതാവിഭാഗ ത്തിൽ സായി തലശ്ശേരി സെന്റ് ജോസഫ് ഇരിങ്ങാലക്കുടയുമായി ഏറ്റുമുട്ടും

അഖിലേന്ത്യ അന്തർ സർവകലാശാല നെറ്റ്ബാൾ ചാംപ്യൻഷിപ്പിൽ കാലികറ്റ് സർവകലാശാല ഫൈനലിൽ കടന്നു ഇന്ന് വൈകിട്ട് നടകുന്ന് ഫൈനലിൽ ആതിഥേയരായ അണ്ണാമലൈ സർവകലാശാലയെ നേരിടും അന്തർദേശീയ നിലവാരത്തിലുള്ള കായിക ഉപകരണങ്ങൾ സാങ്കേതിക വിദ്യകൾ അനുയോജ്യമായ ഭക്ഷണസാധനങ്ങൾ കായിക വസ്ത്രങ്ങൾ എന്നിവ കായിക താരങ്ങൾക്കും കായിക പ്രേമികൾക്കും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന സ്പോർട് എക്സ്പോ മറ്റന്നാൾ കണ്ണൂർ മുണ്ടയാട് ഇന്റോർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും മന്ത്രി ഇ ്പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാനത്തെ ആദ്യ ബ്ലോക്ക് പങ്കാളിത്ത ഹരിതസ്മിതി പടക്കൻ വയനാ ട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു സമിതി സൂക്ഷ്മാസൂത്രണ രേഖ കൈമാറ്റവും പ്രവർത്തി ഉദ്ഘാടനവും ഒ

കേളു എം

നിർവഹിച്ചു